സാലറി ചലഞ്ച് വഴി ശമ്പളം പിരി ച്ചെടുക്കേണ്ടെന്നും തീരുമാനം

ജില്ലാ അടിസ്ഥാനത്തിൽ മന്ത്രിമാരുടെ നിർദേശ പ്രകാരം അവ രുടെ മേൽനോട്ടത്തിലായിരിക്കും സഹായത്തിന് അർഹരായവ രുടെ പട്ടിക തയ്യാറാക്കുക

ജീവനക്കാരിൽ നിന്ന് സാലറി ചലഞ്ച് വഴി ഒരുമാസത്തെ ശമ്പളം പിരിച്ചെടുക്കേണ്ടതില്ലെന്നും മന്ത്രിസഭ തീരുമാനിച്ചു

ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷത്തെ മാനദണ്ഡം അനുസ രിച്ച് ബോണസ് നൽകാനും തീരുമാനിച്ചു എന്നാൽ ഉത്സവ ബത്തയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ഉരുൾപ്പൊട്ടലുണ്ടായ മലപ്പുറം കവളപ്പാറയിൽ കാണാതായ വർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നു ജിയോളജിക്കൽ വകുപ്പിലെ ഉന്നതസംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതേസമയം പ്രദേ ശത്ത് ശക്തമായ മഴ തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് വയനാട് മേപ്പാടി പുത്തുമലയിൽ ദുരന്തത്തിൽ കാണാതായ വർക്കു വേണ്ടി ഊർജിത തെരച്ചിൽ തുടരുന്നു

ഓരോ സംഘത്തിലും ഒരു ജിയോളജിസ്റ്റും മണ്ണുസംരക്ഷണ വിഭാഗം ഉദ്യോഗസ്ഥനു മുണ്ടാകും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ വാസയോഗ്യമാണോയെന്ന് പരി ശോധിച്ച് ഒരാഴ്ചക്കകം റിപോർട്ട് സമർപ്പിക്കാനാണ് നിർദേശം ഐ എൻ എക്സ് മീഡിയാ കേസിൽ ഡൽഹി ഹൈക്കോ ടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെതിരെ മുൻധനമന്ത്രി പി ചിദം ബരം സുപ്രീംകോടതിയിൽ നല്കിയ ഹർജി ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനക്കു വിട്ടു ഹർജിയിൽ ഉടൻ ഉത്തരവിറക്കാൻ കഴിയില്ലെന്ന് വ്യക്ത മാക്കിയാണ് അടിയന്തരമായി പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ ബഞ്ചിലേക്ക് മാറ്റിയത് ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് ഉത്തരവിടു മെന്നും ജസ്റ്റിസ് രമണ അറിയിച്ചു എന്നാൽ ചീഫ് ജസ്റ്റിസ് ഭരണഘടനാ ബെഞ്ച് അയോധ്യ യിലെ തർക്കഭൂമി കേസ് പരിഗണിക്കുന്നതിനാൽ ചിദംബരത്തിന്റെ ഹർജിയിൽ വാദം കേൾക്കാനായിട്ടില്ല

ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സിബി ഐയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഉദ്യോ ഗസ്ഥർ ചിദംബരത്തിന്റെ ഡൽഹിയിലെ വസതിയിൽ പരിശോ ധന നടത്തിയിരുന്നു ചിദംബരത്തെ കണ്ടെത്താനാകാത്ത സാഹ ചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ചിദംബരത്തെ ചോദ്യം ചെയ്യുന്നതിനായി സിബിഐ സംഘം രാവിലെയും ഉച്ചക്കും ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ത്തി ചിദംബരത്തെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് സംഘം മടങ്ങി ഇന്നലെ വൈകീട്ടും സിബിഐ സംഘം ചിദംബരത്തിന്റെ വീട്ടിലെത്തിയിരുന്നു

പാർട്ടി അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നും സത്യത്തിനു വേണ്ടി പൊരു തുമെന്നും അവർ ട്വിറ്ററിൽ പറഞ്ഞു മധ്യപ്രദേശ് മുൻമുഖ്യമന്ത്രിയും മുതിർന്നു ബി ജെ പി നേതാ വുമായ ബാബുലാൽ ഗൌർ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് രാവിലെ ഭോപ്പാലിലെ സ്വകാര്യ ആശ്ുപത്രിയിലായിരുന്നു അന്ത്യം

മധ്യപ്രദേശിന്റെ മുഖഛായ മാറ്റാനും ബി ജെ പിയെ ശക്തി പ്പെടുത്താനും പ്രയത്നിച്ച നേതാവാണ് ബാബുലാൽ ഗൌർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

മൂന്ന് ദിവസത്തെ പാർട്ടി സെക്രട്ടറിയേറ്റിന്റെ തുടർച്ച യായാണ് ഇന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലായി സംസ്ഥാന സമിതി ചേരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉൾപ്പെടെ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ജമ്മു കശ്മീരിലെ ബാരമുള്ള ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സബ് ഇൻസ്പെക്ടറും ഭീകരവാദിയും മരിച്ചു ഖാനി ഹമാമം പ്രദേ ശത്ത് സുരക്ഷാ സേനയും പോലീസും ചേർന്ന് തെരച്ചിൽ നട ത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് സംഭവത്തിൽ ഒരു പൊലീസുകാരന് പരിക്കേറ്റു

പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഗുരുവായൂർ ജനാർദ്ദനൻ നെടുങ്ങാടി അന്തരിച്ചു

സംസ്കാരം വൈകീട്ട് നാലിന് ഗുരുവായൂർ ശ്മശാനത്തിൽ നടക്കും

രോഗി പരിചരണം സ്റ്റാഫിന്റെ കാര്യക്ഷമ ത ഭൌതിക സൌകര്യം ശസ്ത്രക്രിയ മുറികൾ ഉൾപ്പെടെ ഇടങ്ങൾ എത്രത്തോളം അണുവിമുക്തമാണ് എന്നിവ പരിശോധിച്ചാണ് പുര സ്കാരം തീരുമാനിച്ചത്

കൊൽക്കത്തയിൽ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ആദ്യ സെമി യിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരി ടും ഉച്ചക്ക് രണ്ടിന് മത്സരം ആരംഭിക്കും

ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മലയാളി താരം എച്ച് എസ് പ്രണോയ് ഇന്ന് മൂന്നാം റൌണ്ടിൽ മത്സരിക്കും

ഒളിംപിക്സ് സന്നാഹ പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് കിരീ ടം ടോക്യോയിൽ നടന്ന ഫൈനലിൽ ന്യൂസിലന്റിനെ എതിരി ല്ലാത്ത അഞ്ച് ഗോളിനാണ് ഇന്ത്യ തകർത്തത്

കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ റവന്യൂ ടവർ നിർമ്മിക്കുന്നതിന് കിഫ്ബി അംഗീകാരം നല്കി

മട്ടന്നൂരിലെ എല്ലാ ഗവ ഓഫീസുകളെയും ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥലം എം

കൂടിയായ മന്ത്രി ഇ

ജയരാജൻ സമർപ്പിച്ച പദ്ധതി അംഗീകരിച്ചാണ് റവന്യു ടവർ നിർമിക്കുന്നത് മട്ടന്നൂർ കോടതിക്ക് സമീപം പഴശ്ശി ജലസേചന പദ്ധതിയുടെ ഉടമസ്ഥതയിൽനിന്നും വിട്ടുകിട്ടിയ മൂന്ന് ഏക്കർ സ്ഥലത്താണ് ടവർ നിർമിക്കുക

പ്രളയവും ദുരന്തവും ബാധിച്ചവരിൽ ധനസഹായം ലഭിക്കാൻ അർഹരായവരെ നിശ്ചയിക്കുന്നതിന് ഗവൺമെന്റ് മാർഗനിർദേശം പുറപ്പെടുവിച്ചു ഇതിനായി പ്രളയബാധിത പ്രദേശത്ത് വാർഡ് തലത്തിൽ പരിശോധനാ സംഘത്തെ നിയോഗിക്കും ജില്ലാ കല ക്ടറും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറ്ക്ടറും ചേർന്ന് തീരുമാനി ക്കുന്ന പരിശോധനാ സംഘത്തിൽ വില്ലേജ് പഞ്ചായത്ത് ഉദ്യോ ഗസ്ഥർ ഉൾപ്പെടെ മൂന്ന് പേരുണ്ടാകും

തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ എല്ലാ ക്ഷേ ത്രങ്ങളിലും വയോജനങ്ങൾക്കായി ശരണാശ്രയം പദ്ധതി നട പ്പാക്കുമെന്ന് ദേവസ്പം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആ ലപ്പുഴയിൽ പറഞ്ഞു വലിയ കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേ ത്രത്തിലെ ദേവസ്വം ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിക്കു കയായിരുന്നു അദ്ദേഹം ബുദ്ധമതസ്ഥർക്ക് ആരാധനാലയങ്ങൾ സ്ഥാപിക്കാൻ സൌ ജന്യമായി സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെ ടുക്കാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഗവൺമെന്റിന് നിർ ദേശം നൽകി കമ്മീഷൻ അംഗം മുഹമ്മദ് ഫൈസലിന്റെ അധ്യ ക്ഷതയിൽ കൊല്ലത്ത് നടത്തിയ സിറ്റിംഗിൽ പ്രബുദ്ധ ബുദ്ധ ഭാ രത് മെഡിറ്റേഷൻ സെന്റർ പ്രതിനിധി സമർപ്പിച്ച അപേക്ഷ പരിഗ ണിച്ചാണ് തീരുമാനം പാലക്കാട് ആറങ്ങോട്ടുകുളമ്പിൽ നാട്ടിലിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടെ കയ്യിലിരുന്നു പടക്കം പൊട്ടി ഫോറസ്റ്റ് വാ ചർക്കു പരിക്കേറ്റു കോട്ടേക്കാട് സെക്ഷനിലെ ജീവനക്കാരൻ എ സ്

റയിൽവേ ട്രാക്കിൽ നിലയുറപ്പിച്ച ആനയെ മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആലപ്പുഴ കൊല്ലം ബോട്ട് സർവ്വീസ് നാളെ പുനരാരംഭിക്കും